ത നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് പരിശോധന നടത്തുന്നതിന് ആവശ്യമായ ട്രൂനാറ്റ് ടെസ്റ്റ് കിറ്റുകൾ ലഭ്യമാക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

മുരളീധരൻ

വാർത്തകൾ വിശദമായി ആറാമത് അന്താരാഷ്ട്ര യോഗദിനമായ മറ്റന്നാൾ വീടുകളിൽ കുടുംബത്തോടൊപ്പം സാമൂഹിക പാലിച്ച് യോഗ അകലം ആചരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

പൊതുചടങ്ങായാണ് യോഗ ആചരിക്കാറുള്ളത് ഈ വർഷം അത് വീടിനകത്താണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വീട്ടിൽ യോഗ കുടുംബത്തോടൊപ്പം യോഗ എന്നതാണ് ഇത്തവണത്തെ സന്ദേശം കോവിഡ് ഉയർത്തുന്ന വിവിധ വെല്ലുവിളികൾക്ക് ബഹുതല പരിഹാരം യോഗയിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രുമ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് പരിശോധന നടത്തുന്നതിനാവശ്യമായ ട്രൂനാറ്റ് ടെസ്റ്റ് കിറ്റുകൾ ലഭ്യമാക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

വിമാനക്കമ്പനികളുടെ സഹകരണവും അതാതു രാജ്യങ്ങളിലെ എംബസികളുടെ അനുവാദവും ഇതിന് ആവശ്യമാണ് കേന്ദ്ര സഹായം ഇതിന് അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി

ഈ കണക്കുകൾ ജാഗ്രത വർധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഓഫീസുകളുടെ സുരക്ഷാ ക്രമീകരണം പാളിയതിന്റെ ഫലം പലയിടത്തും കാണുന്നുണ്ട്

കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്നവർ കുടുംബത്തോടൊപ്പം താമസിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഒരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്താൽ ആ വ്യക്തി താമസിച്ചിരുന്ന വീടും അതിന്റെ പരിസരത്തെ വീടുകളും ഉൾപ്പെടുത്തി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

എസ് ഇ

ന്യൂസ് ഡസ്ക് ആകാശവാണി രുമ കോവിഡ് ഉയർത്തിയ വെല്ലുവിളി തരണം ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി സാമ്പത്തിക സ്ഥാപനങ്ങളുടെ സഹായം തേടി സംസ്ഥാന പദ്ധതിയിലൂടെയും കിഫ്ബിയിലൂടെയും മറ്റും നടപ്പാക്കുന്ന വികസന പരിപാടികളിൽ സഹകരിച്ച് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗുണകരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി ബാങ്കുകളോട് അഭ്യർത്ഥിച്ചു

രദേ പ്രവാസികളെ കൊണ്ടുവരുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വഞ്ചന കാട്ടുവന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സെക്രറിയേറ്റിന് മുന്നിൽ ഇന്ന് ഉപവസിക്കും രാവിലെ കെ പി സിസി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

രുഭ തൃശൂർ ജില്ലയിലെ കണ്ടയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച തദ്ദേശസ്ഥാപനങ്ങളിൽ നിരോധനാജ്ഞയും നാല് മറ്റു നിയന്ത്രണങ്ങളും തുടരും ഏഴ് ദിവസത്തെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്

ബസുകളോട് നഗരത്തിനകത്ത് പ്രവേശിക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു രുര കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് മരിച്ച എക്സൈസ് ജീവനക്കാരൻ സുനിലിന്റെ മൃതദേഹം ഊരത്തൂരിലെ പഞ്ചായത്ത് ശ്മശാനത്തിൽ കോവിഡ് മാനദണ്ഡമനുസരിച്ച് സംസ്കരിച്ചു സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് സുനിൽ മരണകാരണം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു

ക്വാറന്റെൻ ലംഘനങ്ങൾ കോവിഡ് സാമൂഹ്യവ്യാപനത്തിനു കാരണമാകുമെന്നതിനാലാണ് നടപടി

നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി ഓർഡിനൻസും ഐപിസിയും പ്രകാരവും നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു രുമ കൊല്ലത്ത് ക്വാറന്റയിൻ ലംഘിച്ച് കറങ്ങിനടന്ന മൂന്ന് ഡ്രൈവർമാർക്കെതിരെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ കേസെടുത്തു മഹാരാഷ്ട്രയിൽ നിന്നും ഇതര സംസ്ഥാനക്കാരുമായി നാട്ടിലെത്തിയ ഡ്രൈവർമാരാണ് ക്വാറന്റയിൻ ലംഘനം നടത്തിയത് രുമ ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി ഈ മാസം അവസാനം വരെയാണ് ലോക്ക്ഡൌൺ

രുമ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ വീടുകളിലും അഞ്ചു വർഷം കൊണ്ട് പൈപ്പ് വഴി കുടിവെള്ളമെത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് സംസ്ഥാനം നടപ്പാക്കുന്ന ജലജീവൻ പദ്ധതിക്ക് തുടക്കമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു

കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സി

ആർ പ്രോജക്ടുകൾ മലപ്പുറം ജില്ലാഭരണകൂടത്തിന് സമർപ്പിച്ച ശേഷം സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗ് വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജലവിതരണ പദ്ധതിയും കാലിക്കറ്റ് വിമാനത്താവളം നടപ്പിലാക്കുന്ന മറ്റ് പദ്ധതികളും പ്രദേശവാസികളെക്കൂടി വികസനത്തിൽ ഭാഗഭാക്കുന്ന തരത്തിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇടുപ്പ് മാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടു ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു

ഈ വർഷത്തെ ബോക്സോഫീസ് ഹിറ്റായ അയ്യപ്പനും കോശിയും ആണ് അവസാന ചിത്രം

ഇന്ന് കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹം വൈകിട്ട് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കും ദര മലയാള സിനിമയിലെ ശ്രദ്ധേയനായ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു സച്ചി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു സച്ചിയുടെ അകാല വിയോഗത്തോടെ മലയാള സിനിമയ്ക്ക് പ്രതിഭാശാലിയായ കലാകാരനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു രുമ ഇന്ന് വായനാദിനം കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാദിനമായി ആചരിക്കുന്നത്

രുമ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇന്നു മുതൽ ഒരാഴ്ച്ചക്കാലം സ്കൂളുകളിൽ ഓൺലൈൻ വായനാവാരം ആചരിക്കും വാരാചരണം എം

വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യും

ആന്ധ്രപ്രദേശ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് എന്നിവിടങ്ങളിലെ നാല് വീതം സീറ്റിലേക്കും മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ മൂന്ന് വീതവും ഝാർഖണ്ഡിലെ രണ്ടും മണിപ്പൂർ മിസോറാം മേഘാലയ എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്